നവ ഇന്തൃയ്ക്കായും സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു

നവകേരള നിർമാണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് സംസ്ഥാന ബജറ്റ് രണ്ടുവർഷത്തേയ്ക്ക് പ്രളയ സെസ്

പൊതു വിദ്യാലയങ്ങൾക്ക് കിഫ്ബി ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കുമെന്ന് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി തോമസ് ഐസക്

ബജറ്റ് സമ്മേളത്തിന് മുന്നോടിയായി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം വിശദാംശങ്ങളുമായി റിനൽ

എല്ലാ പൌരന്മാരുടെയും ആരോഗ്യ സംരക്ഷണം എല്ലാവർക്കും വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിൽ ഗണ്യമായ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു

സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വികസനം എത്തിക്കുന്നതിൽ ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു

മല്ലേറിയ വയറിളക്കം തുടങ്ങിയ അസുഖങ്ങൾ ശുചിത്വ നിലവാർം മെച്ചപ്പെട്ടതോടെ ഒരളവു വരെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ ്കുഴിഞ്ഞതായും ് രാഷ്ട്രപതി പറഞ്ഞു

ന്യുസ് ഡെസ്ക് ആകാശവാണി

ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനം പാർലമെന്റിന്റെ പുറത്ത് വാർത്താ ലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഏത് വിഷയത്തിലും ക്രിയാത്മകമായ ചർച്ചയ്ക്ക് ഗവൺമെന്റ് തയ്യാറാണ് രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ അംഗങ്ങൾ തയ്യാറാകണമെന്നും രാജ്യം മുഴുവൻ പാർലമെന്റ് നടപടികൾ വീക്ഷിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

കേസന്വേഷണത്തിന്റെ ഭാഗമായി ഹാജരാകാൻ നേരത്തെ രാജീവ് സക്സേനയോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പലതവണ ആവശ്യപ്പെട്ടിരുന്നു

രാജീവ് സക്സേന അയാളുടെ ഭാര്യ എന്നിവയ്ക്ക് കേസിൽ പങ്കുണ്ടെന്ന് ഇ

ആയിരം കോടി രൂപയിലേറെ സ്വത്തുവകകൾ മറച്ച് വച്ചതിൽ അന്വേഷണം നേരിടുന്ന ആളാണ് ദ്വീപ്പക് തൽവാർ വിവിഐപി ഹെലികോപ്റ്റർ ഇടപാടിലെ പ്രിപ്ടിദ്ദ് ഇടനിലക്കാരൻ ക്രിസ്റ്റ്യൻ മിഷേലിനെ കഴിഞ്ഞമാസം യു

ഇ ഇന്ത്യ്യ്ക്ക് കൈമാറിയിരുന്നു

നാഗേശ്വര റാവുവിനെ ഇട്ടക്കാല സി

ഐ മേധാവിയായി നിയമിച്ചതിനെതിരായ ഹർജി ് കേൾക്കുന്നതിൽ നിന്നും സുപ്രീംകോടതി ജഡ്ജി എൻ

ഈ ഹർജി കേൾക്കുന്നതിൽ നിന്നും പിന്മാറുന്ന മൂന്നാമത്തെ ജഡ്ജിയാണ് ഇദ്ദേഹം നേരത്തെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി ജസ്റ്റിസ് എ

സിക്രി തുടങ്ങിയവർ ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും പിന്മാറിയിരുന്നു ഇടക്കാല മേധാവിയായി നാഗേശ്വര റാവുവിനെ നിയമിച്ചതിനെതിരെ കോമൺകോസ് എന്ന എൻ

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് തീരുമാനം

അനധികൃതമായാണ് ഈ സ്വത്തു വകകൾ ഇവർ സ്വായത്തമാക്കിയതെന്ന് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു മൂന്ന് വസ്തുക്കളും ആർ

ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിന്റെ പത്നിയ്ക്ക് ദാനമായി ലഭിച്ചതാണെന്നും അധികൃതർ പറഞ്ഞു കുടുംബത്തിൽ ജോലി ചെയ്യുന്നവരുടെ പേരിലാണ് ഈ വസ്തുവകകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി ജോലിക്കാർ ആരും തന്നെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കുന്നവരല്ലെന്നും ഇത് സൂചിപ്പിക്കുന്നത് മറ്റാർക്കോ വേണ്ടിയാണ് ഭൂമി ഇട്പാട് നടന്നിട്ടുള്ളതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു

അഞ്ചു വർഷം കൊണ്ട് ആറായിരം കിലോമീറ്റർ റോഡ് നിർമ്മിക്കുമെന്ന് ധനമന്ത്രി പിണറാത്യി വീജയൻ ഗവൺമെന്റിന്റെ നാലാമത് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം പ്രളയാന ന്തര കേരളത്തിന് ഊന്നൽ ന്ൽകികൊണ്ടാണ് ശ്രീ

പുനർനിർമ്മാണം കിഫ്ബി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടാണ് പ്രധാ നമായും പദ്ധതികൾ സംഘടിപ്പിക്കുന്നത് ബജറ്റിലെ പ്രസക്ത നിർദ്ദേശങ്ങളെപ്പറ്റി കരോൾ എബ്രഹാം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് ധനമന്ത്രി ബജറ്റ് അവതരണം തുടങ്ങിയത് തിരുവനന്തപുരത്ത് നവോത്ഥാന മ്യൂസിയം തുടങ്ങും സ്തീ ശാക്തീകരണത്തിനായി പ്രവർത്തിക്കുന്ന പ്രമുഖവനിതക്ക് ദാക്ഷായണി വേലായുധൻ പുരസ്കാരം നൽകുമെന്നും ധനമന്ത്രി പറഞ്ഞു

തിരുവനന്തപുരം കെഎസ്ആർടിസി കോർപ്പറേഷനിലെ മുഴുവൻ ബസുകളും ഇലക്ട്രിക് ബസുകളാക്കും

ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മൃതദേഹങ്ങൾ കൊണ്ടുവരാനുള്ള ചെലവ് നോർക്ക വഹിക്കും

എസ് ആർ

തൊഴിലു്റപ്പു പദ്ധതി വിപുലമാക്കും

കാർഷികോൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തും

സിനിമാ ടിക്കറ്റ് ആഡംബര ഉൽപന്നങ്ങൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ബിയർ വൈൻ സ്വർണം വെള്ളി സിമന്റ് ഗ്രാനൈറ്റ് സെറാമിക് ടൈൽസ് പെയിന്റ് പ്ലൈവുഡ് എന്നിവയ്ക്ക് വില ഉയരും

വിരാട് കോഹ്ലി മഹേന്ദ്ര സിംഗ് ധോണി എന്നിവർ ഇല്ലാതെ ഇറങ്ങിയ ഇന്ത്യൻ ബാറ്റിംഗ് നിര കിവീസ്ക് ബൌളർമാർക്ക് മുന്നിൽ തകർന്നടിയുകയായിരുന്നു